കൊച്ചി മരടിലെ അനധികൃത പാർപ്പിട സമുച്ചയങ്ങളിൽ രണ്ടെണ്ണം നിയന്ത്രിത സ്ഫോടനത്തിലൂടെ വിജയകരമായി തകർത്തു പൌരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ ജനങ്ങളെ കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും സംസ്ഥാനത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ശ്രമിക്കുകയാണെന്ന് കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ

രാഷ്ട്രപതി രാം നാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചിച്ചു ും ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് മത്സരങ്ങൾ ഗോഹട്ടിയിൽ പുരോഗമിക്കുന്നു ദേശീയ റോഡ് സുരക്ഷാ വാരാചരണത്തിന് തുടക്കമായി

കൊച്ചി മരടിലെ അനധികൃതമായി നിർമ്മിച്ച പാർപ്പിട സമുച്ചയങ്ങളിൽ രണ്ടെണ്ണം നിയന്ത്രിത സ്ഫോടനത്തി ലൂടെ വിജയകരമായി തകർത്തു സുപ്രീംകോടതി ഉത്തരവനുസരിച്ചായിരുന്നു നടപടി ആദ്യം തകർത്ത ഹോളിഫെയ്ത്ത് എച്ച്

സ് ഫോടനം പൂർണവിജയമായി രുന്നുവെന്നും ഉദ്ദേശിച്ച തരത്തിൽതന്നെ കെട്ടിടങ്ങൾ തകർക്കാൻ കഴിഞ്ഞുവെന്നും എഡിഫൈസ് ഗ്രൂപ്പിന്റെ മേധാവിയും വിജയ സ്റ്റീൽ അധികൃതരും പ്രതികരിച്ചു ശേഷിക്കുന്ന രണ്ട് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നാളെ പൊളിക്കും പൌരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനുമാണ് സംസ്ഥാനത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ശ്രമിക്കുന്നതെന്ന് കേന്ദ്രസഹമന്ത്രി വി

ഭാരതീയ വിചാര കേന്ദ്രം മുപ്പത്തി ഏഴാം സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എതിർക്കേണ്ട ഒരു വകുപ്പും പൌരത്വ ഭേദഗതി നിയമത്തിൽ ഇല്ലെന്നും അദ്ദേഹം വൃക്തമാക്കി ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണോ യെന്ന് കോടതി തീരുമാനിക്കട്ടെയെന്നും മുരളീധരൻ പറഞ്ഞു അമിത് ഷാ വരുന്നതിന്റെ പേരിൽ കോഴിക്കോട്ട് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ആസൂത്രിതമാണെന്നും കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തി ചില ശക്തികൾ കേരളത്തെ എങ്ങോട്ടേക്കാണ് കൊണ്ടു പോകുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരി ക്കുന്നുവെന്ന് മന്ത്രി പറഞ്ഞു കേരളത്തിൽ ഇപ്പോൾ നടന്നു കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ വലിയ അഭിമാനത്തോടെയാണ് ചിലർ കാണുന്നത് കണ്ണൂരിലെ ചരിത്ര കോൺഗ്രസിൽ ഗവർണറെ തടസ്സപ്പെടുത്തിയത് വലിയ നേട്ടമായാണ് അവർ കാണുന്നതെന്നും മുരളീധരൻ വിമർശിച്ചു സംസ്ഥാനത്തിന്റെ സാംസ് കാരിക പാരമ്പര്യത്തെയും സഹിഷ്ണുതയെയും കളങ്കപ്പെടുത്തുകയാണ് ഇത്തരം സംഭവങ്ങൾ എന്നും അദ്ദേഹം പറഞ്ഞു ഭാരതീയ വിചാര കേന്ദ്രം ഡയരക്ടർ പി

സംസ്ഥാന പ്രസിഡന്റ് എം

പാർലമെന്റ് അംഗവും ഇന്ത്യൻ പോളിസി ഫൌണ്ടേഷൻ അംഗവുമായ ഡോ

ഭാരതീയ വിചാര കേന്ദ്രം സമ്മേളന വേദിയിൽ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്ന് വിചാരവേദി ഡയരക്ടർ പി

ആരോഗ്യ നില തൃപ്തിതികരമെന്ന് ഡോക്ടർമാർ അറിയിച്ചു കണ്ണൂർ പയ്യന്നൂർ കണ്ടങ്കാളിയിലെ നിർദ്ദിഷ്ട എണ്ണ സംഭരണ ശാല സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശിച്ച സ്ഥലത്താണെന്നും ശാല മാറ്റുന്ന കാര്യം സംസ്ഥാനമാണ് തീരുമാനിക്കേണ്ടതെന്നും കേന്ദ്ര സഹമന്തി വി

നിവേദനം നൽകാനെത്തിയ കർമ്മ സമിതി പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടുദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കൊൽക്കത്തയിൽ എത്തും കൊൽക്കത്തയിലെ നവീകരിച്ച നാല് പൈതൃക മന്ദിരങ്ങൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും ഓൾഡ് കറൻസി മന്ദിരം ബെൽവെദേർ ഹൌസ് മെറ്റ്കാഫ് ഹൌസ് വിക്ടോറിയ സ്മാരക ഹാൾ എന്നിവയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്

നേതാജി സുഭാഷ് ഡ്രൈ ഡോക്കിലെ കൊച്ചിൻ കൊൽക്കത്ത ഷിപ്പ് യൂണിറ്റിൻറെ മെച്ചപ്പെടുത്തിയ കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രത്തിൻറെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും

ഇന്ത്യയുടെ അടുത്ത സുഹൃത്തും മേഖലയിലെ സമാധാനത്തിനായി വിശ്രമമില്ലാതെ പ്രവർത്തിച്ച ജനനേതാവും ആയിരുന്നു സുൽത്താനെന്ന് രാഷ്ട്രപതി രാം നാഥ് കോവിന്ദ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു ഇന്ത്യയുടെ യഥാർത്ഥ സുഹൃത്തായിരുന്നു സുൽത്താനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടിറ്ററിൽ കുറിച്ചു ഉക്രൈൻ വിമാനം അബദ്ധത്തിൽ വെടിവെക്കുക യായിരുന്നുവെന്ന് ഇറാന്റെ സ്ഥിരീകരണം ശത്രു വിമാനമാണെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു ആക്രമണമെന്ന് ഇറാൻ അറിയിച്ചു

എസ് സേനയെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് വിമാനം തകർന്നത് ഉക്രൈനിയൻ വിമാനത്തിനുനേരെ വെടിവെച്ചതിൽ ഇറാൻ പ്രസിഡണ്ട് ഹസൻ റുഹാനി അഗാധമായ ഖേദം അറിയിച്ചു മാനുഷികമായ തെറ്റിനെ തുടർന്ന് വിമാനത്തിനുനേരെ മിസൈൽ ആക്രമണം നടത്തുകയാ യിരുന്നുവെന്ന് അദ്ദേഹം അറിയിച്ചു

ജയ്ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യവുമായി രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കാൻ ലാൽബഹദൂർ ശാസ്ത്രി മികച്ച സംഭാവന നൽകിയതായി ഉപരാഷ്ട്രപതി ട്വീറ്റ് ചെയ്തു ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ സംഘർഷമു ണ്ടായതിനെ തുടർന്ന് വീടുകളിലേക്ക് പോയ എല്ലാ വിദ്യാർത്ഥികളും ഹോസ്റ്റലുകളിൽ തിരിച്ചെത്തണമെന്ന് വൈസ് ചാൻസലർ എം

സർവകലാശാല സാധാരണ സ്ഥിതിയിലായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ക്യാമ്പസിൽ സുരക്ഷ ശക്തിപ്പെടുത്തിയതായും വി

അധ്യയന പ്രവർത്തനങ്ങളും പുനരാരംഭി ച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു

ക്യാമ്പസിൽ ആഭ്യന്തര സുരക്ഷക്കായി വിമുക്ത ഭടന്മാരെ നിയോഗിച്ചിട്ടുണ്ട് സർവകലാശാല കവാടത്തിൽ നിൽക്കാനും ക്രമസമാധാന പ്രശ്നമുണ്ടാകുകയാണെങ്കിൽ ക്യാമ്പസിനകത്ത് കയറാനും പൊലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വി സി അറിയിച്ചു

അമ്പെയ്ത്ത് അത്ലറ്റിക്സ് ജിംനാസ്റ്റിക്സ് ജൂഡോ കബഡി ഷൂട്ടിങ് ടേബിൾടെന്നീസ് വോളിബോൾ ഇനങ്ങളിലാണ് ഇന്ന് മത്സരം

മഹാരാഷ്ട്ര രണ്ടും ഉത്തർപ്രദേശ് മൂന്നും സ്ഥാനങ്ങളിലുണ്ട്

സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ രാവിലെ കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും

അമിത വേഗം അമിത വെളിച്ചം അമിത ശബ്ദം എന്നിവ ഒഴിവാക്കി യാത്രയ്ക്കാണ് പ്രാധാന്യം നൽകുന്നതെന്ന് ജില്ലാ കലക്ടർ ടി വി സുഭാഷ് വാർത്താ സമ്മേളനത്തിലറിയിച്ചു സംസ്ഥാന പോലീസ് ജനമൈത്രി സുരക്ഷ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന കവചം പദ്ധതിയും മറ്റന്നാൾ കണ്ണൂരിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ദുർബ്ബല വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വീടിനകത്തും പുറത്തും സന്തോഷകരമായ ജീവിതം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് കോൺഗ്രസ് പ്രവർത്തക സമിതി ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും പൌരത്വ നിയമ ഭേദഗതി ദേശീയ പൌരത്വ രജിസ്റ്റർ സർവകലാശാലാ ക്യാമ്പസുകളിലെ പ്രതിഷേധം തുടങ്ങിയവ യോഗം ചർച്ച ചെയ്തേക്കും ഇക്കാര്യങ്ങളിൽ പാർട്ടി ഭാവിയിൽ തുടർന്ന് സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ സംബന്ധിച്ച പ്രമേയം യോഗം പാസ്സാക്കിയേക്കും

എം പൊളിറ്റ്ബ്യൂറോ യോഗം ഇന്ന് തുടങ്ങും പൌരത്വ ഭേദഗതി നിയമം ജെ

യു സംഘർഷം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായേക്കും

പരിസ്ഥിതിയും കാലാവസ്ഥാ വ്യതിയാനവും എന്നതാണ് ഇത്തവണത്തെ ഫെസ്റ്റിവൽ ഫോക്കസ് തീം

തമിഴാണ് അതിഥി ഭാഷയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഗാന്ധിയും പരിസ്ഥിതിയും പ്രെളയാനന്തര കേരളം ഗാഡ് ഗിൽ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ വനനശീകരണവും മണൽ ഖനനവും പ്രാദേശിക ഭാഷകളുടെ ആവിർഭാവം ഗോത്രഭാഷാ സാഹിത്യം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും

എ ഇ പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാനം വിഭാഗം മന്ത്രി തനി ബിൻ അഹമ്മദ് അൽ സയൌദി ഡോക്ടർ ശശിതരൂർ എം പി പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ രാജ്ദീപ് സർദേശായി തുടങ്ങിയവർ സംബന്ധിക്കും

നെഹ്റുയുവ കേന്ദ്രയും കോഴിക്കോട് ഹെൽത്ത് കെയർ ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജില്ലാ സ് പെഷ്യൽ ഫുട്ബാൾ ടൂർണമെന്റിന് പൂനൂരിൽ തുടക്കമായി ജില്ലാ പഞ്ചായത്ത് അംഗം നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു കൂടത്തായ് കൊലപാതക പരമ്പര ഇതിവൃത്തമാക്കി നിർമിക്കുന്ന സിനിമകൾക്കും സീരിയലുകൾക്കെതിരെ കോടതിയെ സമീപിച്ചത് റോയ് തോമസിന്റെ മക്കളുടെ മാനസികാവസ്ഥയെ കരുതിയാണെന്ന് സഹോദരി റെഞ്ചി തോമസ് കോഴിക്കോട് താമരശ്ശേരിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കേസ് റജിസ്റ്റർ ചെയ്തത് മുതൽ വലിയ മാനസിക സംഘർഷത്തിലാണ് ഇരുവരുമെന്നും അവർ ആവശ്യപ്പെട്ടത് പ്രകാരം അവരുടെ ഭാവിയെ കരുതിയാണ് കോടതിയിൽ ഹർജി നല്കിയതെന്നും റെഞ്ചി തോമസ് വ്യക്തമാക്കി കൊല്ലം എഴുകോൺ പൊലീസ് സ്റ്റേഷനിൽ പൊലീസുകാരനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി കുണ്ടറ സ്വദേശി സ്റ്റാലിനാണ് മരിച്ചത്

പാലക്കാട് ജില്ലയിലെ രണ്ടാംവിളയ്ക്ക് മലമ്പുഴ ഇടതുകര കനാലിലൂടെ മാർച്ച് മൂന്നുവരെ വെള്ളം ലഭ്യമാക്കും